മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയു മായ എസ് ജയ്പാൽ റെഡ്ഡി അന്തരിച്ചു

കല്ലട ഇറിഗേഷൻ പദ്ധതി മൂന്നുമാസത്തിനകം പൂർണ്ണ തോതിൽ പ്രവർത്തനസജ്ജമാക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകി ഏഴാമത് അന്താരാഷ്ട്ര കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും

രാജ്യത്തിന്റെ സുരക്ഷാ താൽപര്യങ്ങളും വിഭവങ്ങളും സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിച്ച് വരുക യാണെന്നും അത് തുടരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കർഗിൽ യുദ്ധവിജയം ഇന്ത്യയുടെ കരുത്തിന്റെയും നിശ്ച യദാർഢ്യത്തിന്റെയും ശേഷിയുടെയും അടയാളമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രണ്ട് ദശകങ്ങൾക്ക് മുമ്പ് കർഗി ലിൽ നമ്മുടെ സൈന്യം പരാജയപ്പെടുത്തിയത് പാക്കിസ്ഥാനെ ഓർമ്മിപ്പിച്ച അദ്ദേഹം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന തിനെതിരെ മുന്നറിയിപ്പ് നൽകി ഭീകരവാദപ്പും നിഴൽയുദ്ധവും ലോകത്തിന് ഭീഷണിയാ ണ് കർഗിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടവർ അവരുടെ രാഷ്ട്രീ യലക്ഷ്യം നേടുന്നതിനുവേണ്ടി നിഴൽ യുദ്ധവും ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നതും തുടരുകയാണെന്നും പ്രധാനമന്ത്രി പറ ഞ്ഞു

ഏറെ നാളായി രോഗബാ ധിതനായിരുന്ന അദ്ദേഹം ഇന്ന് പുലർച്ചെ ഹൈദരബാദിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്തരിച്ചത്

കെ ഗുജ്റാൾ ഗവൺമെന്റിൽ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയായും മൻമോഹൻസിംഗ് ഗവൺമെന്റിൽ നഗര വികസന പെട്രോളിയം പ്രകൃതി വാതക ശാസ്ത്ര സാങ്കേ തിക വകുപ്പ് മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ശാരീരിക അവശതകൾക്കിടയിലും ഇന്ത്യൻ രാഷ്ട്രീയ ത്തിൽ നിറഞ്ഞുനിന്ന നേതാവായിരുന്നു ജയ്പാൽ റെഡ്സി തെലങ്കാനയിലെ നെർമാട്ടെ ഗ്രാമത്തിൽ ജനിച്ച ജയ്പാൽ റെഡ്സി കോൺഗ്രസ്സിലൂടെയാണ് രാഷ്ട്രീയത്തിലെത്തിയത്

അഞ്ചുതവണ ലോക്സഭയിലേക്കും രണ്ടുതവണ രാജ്യസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു

സാമുദായിക വേർതിരിവ് രൂക്ഷമായി വരുന്ന ഇക്കാലത്ത് വിശാല മാനവികതയ്ക്കുവേണ്ടി നിലകൊള്ളുന്ന സിനിമകളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു

ന കഴിഞ്ഞ കുറേക്കാലമായി ചലച്ചിത്രരംഗത്ത് വർഗീയതയുടെ വിദ്ധേഷം പടർത്താനുള്ള ശ്രമങ്ങൾ ദേശീയതലത്തിൽ ശക്തി പ്പെട്ടുവരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

മികച്ച നടനുള്ള പുരസ്കാരം ജയ സൂര്യയും സൌബിൻ ഷാഹിറും പങ്കിട്ടു മികച്ച നടക്കുള്ള പുര സ്കാരം നിമിഷ സജയനും മികച്ച ചിത്രത്തിനുള്ള പുര സ്കാരം ്കാന്തൻ ദി ലവർ ഓഫ് കളറിന്റെ ്സംവിധായ കൻ ഷെരീഫ് സി

മലയാള സിനിമയ്ക്ക് അമൂല്യമായ സംഭാവനകൾ നൽകിയ ചലച്ചിത്ര പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാ ടിയായ മൻ കി ബാതിൽ ഇന്ന് രാജ്യത്തെയും വിദേശത്തെയും ജനങ്ങളോട് തന്റെ ചിന്തകൾ പങ്കുവെയ്ക്കും

ദൂരദർശനും മൻ കി ബാത് സംപ്രേഷണം ചെയ്യും ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞയുടൻ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങളിൽ കേൾക്കാം രാത്രി എട്ടിന് പുനഃപ്രക്ഷേപണം ഉണ്ടാകും കർണ്ണാടകയിൽ സ്പീക്കർ കെ ആർ രമേഷ് കുമാർ സ്ഥയം പദവി ഒഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ബി

നിയമസഭയിൽ ബി എസ് യെദിയൂരപ്പ വിശ്വാസവോട്ട് നേടിയശേഷം സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ ബംഗളുരുവിൽ അറി യിച്ചു അതിനിടെ ജനതാദൾ എസ് ബി

പിക്ക് പിന്തുണ നൽകു മെന്ന റിപ്പോർട്ടുകൾ പാർട്ടി ദേശീയ അധ്യക്ഷനും മുൻ പ്രധാ നമന്ത്രിയുമായ എച്ച് ഡി ദേവഗൌഡ നിരാകരിച്ചു ക്രിയാത്മക പ്രതിപക്ഷമായി പാർട്ടി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം ബംഗ ളുരുവിൽ അറിയിച്ചു

പി കുതിരക്കച്ചവടത്തിലൂടെയാണ് ഗവൺമെന്റ് രൂപീകരിച്ചതെന്നും ഭൂരിപക്ഷമില്ലാതെ ഗവർണറുടെ ഭരണഘ ടനാ പദവി ദുരുപയോഗം ചെയ്താണ് അധികാരത്തിലെത്തി യതെന്നും കോൺഗ്രസ് നിയമസഭാകക്ഷി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ സിദ്ധരാമയ്യ കുറ്റപ്പെടുത്തി

ജെ

മുംബൈയിൽ കനത്ത മഴ തുടരുന്നു ഇന്നും അതി ശക്ത മായ മഴയ്ക്ക് സാധൃതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്

നാളത്തെ എറണാകുളം പൂനെ എക്സ്പ്രസ് ട്രെയിൻ റദ്ദ് ചെയ്തതായി റെയിൽവേ അറിയിച്ചു കല്ലട ഇറിഗേഷൻ പദ്ധതി വീഴ്ചകൾ പരിഹരിച്ച് മൂന്നുമാ സത്തിനകം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കണ മെന്ന് മന്ത്രി കെ

കല്ലട ജല സേചന പദ്ധതിയുടെയും ഡാമിന്റെയും ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്ത് നേരിൽ വിളിച്ചുവരുത്തി യാണ് മന്ത്രി നിർദ്ദേശം നൽകിയത് മന്ത്രിയുടെ നേതൃത്വ ത്തിൽ നിയമസഭാ സമിതി കഴിഞ്ഞദിവസം കല്ലടയിൽ തെളി വെടുപ്പ് നടത്തിയിരുന്നു അന്ന് കണ്ടെത്തിയ അപാകതകളാണ് എത്രയും വേഗം പരിഹരിക്കാൻ നിർദ്ദേശിച്ചത് കോഴിക്കോട് തുഷാരഗിരിയിൽ നടക്കുന്ന ഏഴാമത് അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിങ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും ഇന്നലെ നടന്ന വനിതാവിഭാഗം സ്താലോം മത്സരത്തിൽ മേഘാലയയിൽ നിന്നുള്ള മലയാളി താരം എലിസബത്ത് വിൻസന്റ് ജേതാവായി ഈയിനത്തിൽ നിലവിലെ ദേശീയ ചാംപ്യനായ മധ്യപ്രദേശിന്റെ ആരതി പാണ് ഡേയെയാണ് എലിസബത്ത് പിന്നിലാക്കിയത്

വിവിധ മത്സരങ്ങളിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലായി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയവരെ ചാമ്പ്യൻഷിപ്പിലെ റാപ്പിഡ് രാജയായും റാപ്പിഡ് റാണിയായും തെരഞ്ഞെടുക്കും കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സമാപിച്ച സംസ്ഥാന ഗുസ്തി ചാംപ്യൻഷിപ്പിൽ ഗ്യീക്കോ റോമൻ വിഭാഗത്തിൽ പാലക്കാട് ജില്ല ജേതാക്കളായി മലപ്പുറത്തിനാണ് രണ്ടാംസ്ഥാനം വീടില്ലാത്ത അർഹതപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കും ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമിച്ചു നൽകുമെന്ന് മന്ത്രി ടി

പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിൽ വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് വീട് നൽകുമെന്നും മന്ത്രി പറഞ്ഞു

കോൺഗ്രസ് പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കുമെന്ന് കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു മല പ്പുറം ജില്ലാ കോൺഗ്രസ് നേതൃക്യാമ്പ് തേഞ്ഞിപ്പലത്ത് ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദേശീയ തലത്തിൽ സി

കേരളത്തിലും സി

ഐയെ യു

എഫിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി മുല്ലപ്പള്ളി അറിയിച്ചു ഗവൺമെന്റിനെക്കുറിച്ചും പാർട്ടിയെക്കുറിച്ചും തദ്ദേശ സ്ഥാപനങ്ങളെക്കു റിച്ചും ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക എന്നതാണ് ഗൃഹസന്ദർശനം പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഇത്തരത്തിൽ ജന ങ്ങളിൽനിന്ന് ലഭിക്കുന്ന പ്രതികരണം ഭാവി പ്രവർത്തന ങ്ങൾക്ക് ഊർജ്ജം പകരുമെന്നും അദ്ദേഹം തലശ്ശേരിയിൽ പറഞ്ഞു സംസ്ഥാനത്ത് യു

എഫ് അധികാരത്തിൽ വന്നാൽ തിരു വനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഇപ്പോഴത്തെ സ്ഥല ത്തുനിന്ന് മാറ്റുമെന്ന് കെ മുരളീധരൻ എം

കോഴി ക്കോട് ഡി

സിയിൽ ഡി

എഫ് സംഘടിപ്പിച്ച പി സി രാധാകൃഷ്ണൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു അദ്ദേഹം കോളേജ് ചരിത്ര മ്യൂസിയമോ പൊതു സ്ഥലമോ ആക്കി മാറ്റണമെന്നും മുരളീധരൻ അഭിപ്രായപ്പെ ട്ടു എറണാകുളം ജില്ലയിലെ ചെങ്ങമ്മനാട് ഗ്രാമപഞ്ചായ ത്തിന്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഐ

പഞ്ചായത്തിന്റെ റെക്കോർഡ് റൂം ബെന്നി ബെഹനാൻ എം പിയും ഫ്രണ്ട് ഓഫീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി കുര്യാക്കോസും ഉദ്ഘാടനം ചെയ്തു

സാങ്കേതിക സർവ്വകലാശാല രജിസ്ട്രാറോടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയോടും വിഷയം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് റെയ്ഞ്ച് പരിധിയിൽ കാട്ടാന ശല്ല്യം രൂക്ഷമായ മുതലമട പറയമ്പള്ളം ഉപ്പുതോട് ശ്മശാനം റോഡ് എന്നിവിടങ്ങളിൽ രാത്രിക്കാല പട്രോളിങ് ശക്തമാക്കിയതായി വനം വകുപ്പ് അധികൃതർ അറിയിച്ചു വനപ്രദേശത്തോടു ചേർന്ന് സ്ഥലങ്ങളിലെ വിളകൾ കാട്ടാനകൾ ഇറങ്ങി നശിപ്പിക്കുന്നത് പതിവായതിനെ തുടർന്നാണ് നടപടി നെല്ലിയാമ്പതി ചുരം റോഡിലും ആനശല്യം ഉള്ളതിനാൽ ഇതുവഴി രാത്രി യാത്രക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്

രാവിലെ ബിഷപ്പ് ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ നേർച്ചയപ്പം വെഞ്ചരിക്കും തുടർന്ന് ബിഷപ്പ് ജേക്കബ് മുരിക്കൻ വിശുദ്ധ കുർബാന അർപ്പിക്കും വൈകലൃമുള്ളവരുടെ തൊഴിൽ പ്രശ്നം പരിഹരിക്കുന്ന തിനു വേണ്ടി ഭിന്നശേഷി വിഭാഗത്തിൽനിന്നും ഒരാളെ പി

വയനാട് അമ്പലവയലിൽ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകൻ നടുറോഡിൽ യുവതിയെയും യുവാവിനെയും മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണസംഘം ഇരുവരുടെയും മൊഴിയെടുത്തു

യുവതിയെയും യുവാവിനെയും വിളിച്ചുവരുത്തി രഹസ്യ മൊഴി രേഖപ്പെടുത്താൻ കോടതിയുടെ അനുവാദം തേടാനും അന്വേഷണസംഘം തീരുമാനിച്ചിട്ടുണ്ട് അന്തൂരിലെ രാഖി കൊലക്കേസിലെ മുഖ്യപ്രതി അഖിലിനെ പൊലീസ് അറസ്റ്റ് ചെയ്തു

കേസിലെ രണ്ടാം പ്രതിയും അഖി ലിന്റെ സഹോദരനുമായ രാഹുലിനെയും മൂന്നാം പ്രതിയും അഖിലിന്റെ സുഹൃത്തുമായ ആദർശിനേയും നേരത്തെ പൊലീസ് അറസ്റ്റ് ചെയ്തിരുന്നു

സി ഡിവിഷൻ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് കൈക്കൂലി വാങ്ങുന്നതിനിടെ മലപ്പുറം എടവണ്ണയിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറെ വിജിലൻസ് പിടികൂടി എട വണ്ണ വി

ഒ കൃഷ്ണദാസിനെയാണ് വിജിലൻസ് ഡി